വായ്പകൾ എഴുതിത്തള്ളുമെന്ന പേരിൽ കോൺഗ്രസ് രാജ്യത്തെ കർഷകരെ ചതിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ

ഇന്തോനേഷ്യയിൽ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം

വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് ദേശീയപാത സാംസ്കാരിക മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ

ശ്രീബുദ്ധന്റെയും വിവിധ ബുദ്ധസന്ന്യാസിമാരുടെയും ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ലളിത്ഗിരി ആർക്കിയോളജിക്കൽ മ്യൂസിയവും പ്രധാനമന്ത്രി ഉദ്ഘാടനും ച്ചെയ്തു

ടിയിൽ നടന്ന ചടങ്ങിൽ പൈക വിപ്ലവ സ്മുര്ണയ്ക്കായി നാണയവും തപാൽ സ്റ്റാമ്പും അദ്ദേഹം പ്പുറത്തിറക്കി

ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ അഴിമതി ശക്തിപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ ആരോഗ്യപദ്ധതിയായ ആയുഷ്മാൻ ഭാരത് സ്വീകരിക്കാൻ ഒഡീഷ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു

അടൽജി നമ്മോടൊപ്പം ഇല്ലെന്ന യാഥാർത്ഥൃം വിശ്വസിക്കാനാവുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാണയം പുറത്തിറക്കികൊ ് പറഞ്ഞു ന്യൂഡൽഹിയിൽ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി മഹേഷ് ശർമ്മ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ മുതിർന്ന നേതാവ് എൽ കെ അദാനി എന്നിവർ സംബന്ധിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

ഈ പാലത്തിലൂടെയുള്ള ആദ്യ പാസഞ്ചർ ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് ധേമാജി ജില്ലയിലെ കാരംഗ് ചപ്പോരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പൊതു പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

താഴത്തെ തട്ടിൽ ഇരട്ട റയിൽപാതയും മുകളിൽ ്മൂന്ന് വരി റോഡുമാണുള്ളത്

മുഴുവൻ വായ്പയും എഴുതിത്തള്ളുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്

ന്യൂഡൽഹിയിൽ വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇത്തരത്തിൽ ജി എസ് ടി സ്താബ് നിരക്ക് കുറയ്ക്കുക വഴി ധാരാളം ഉല്പന്നങ്ങളുടെ വിപണനം വർദ്ധിപ്പിച്ച് റവന്യൂ കൂട്ടാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞെന്നു ശ്രീ ജെയ്റ്റ്ലി പറഞ്ഞു

ജയ്പൂരിൽ നടന്ന ചടങ്ങിൽ ഗവർണർ കല്യാൺസിംഗ് പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു

നാനാത്വത്തിൽ ഏകത്വം സൂചിപ്പിക്കുന്ന തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച കല്ലുകളുപയോഗിച്ചാണ് സമാധി പണിതിരിക്കുന്നത്

ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

കടുത്ത മഴയെ അവഗണിച്ചും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അൻപതിലേറെ പേരെ കാണാതായിട്ടു ് ഇവർക്കുവേ ിയുള്ള അന്വേഷണവും നടക്കുന്നു ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ ജനതയ്ക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഒരുക്കമാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു സംഭവത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി

ഉപഭോക്തൃ പരാതികളുടെ സമയബന്ധിത തീർപ്പാക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉപഭോക്തൃ ദിനാചരണ സന്ദേശം

ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വലിയ ശിക്ഷയും ബിൽ ഉറപ്പാക്കുന്നു

വെങ്കയ്യ നായിഡുവും രാജ്യത്തെ നിവാസികൾക്ക് ക്രിസ്തുമസ് ആശംസകൾ നേർന്നു ക്രിസ്തുമസ് സമാധാനത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും ആഘോഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുമസ് എന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

കാണേ രഥയാത്രയ്ക്ക് അനുമതി നൽകിയ കൊൽക്കത്ത സിംഗിൾ ബഞ്ച് വിധി ഡിവിഷൻ ബഞ്ച് വ്ള്ളിയാഴ്ച റദ്ദാക്കിയിരുന്നു

മുസാഫർപ്പൂർ ലോക്സഭ മണ്ഡലത്തിലെ എം

സാമൂഹിക സേവനങ്ങളുടെ പേരിൽ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു സംസ്ക്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നിർവ്വഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

അതേസമയം ഫ്ളാഗ്ഷിപ്പ് ഇൻവെസ്റ്റ്മെന്റ് അഴിമതി കേസിൽ ഷെരീഫിനെ കോടതി കുറ്റവിമുക്തനാക്കി പനാമ പേപ്പറുകളിലൂടെ പുറത്ത് വന്ന സ്വത്തൂവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് അഴിമതി കേസുകളാണ് നവാസ് ഷെരീഫിനെതിരെ അക്കൌ ബിലിറ്റി ബ്യൂറോ ചുമത്തിയിരുന്നത്

മൂന്ന് തപ്പിണി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്നു നവാസ് ഷെരീഫ്

സുരക്ഷ സൈനൃത്തെ ലക്ഷ്യമാക്കി ബോംബുകളും സ്ഫോടകവസ്തുക്കളും ഉപയോഗിക്കുന്നത് താലിബാനാണെന്ന് അദ്ദേഹം പറഞ്ഞു

ായ അപകടത്തിൽ എട്ട് പേർ മരിച്ചു മരിച്ചവരിൽ ഏഴുപേർ സ്ത്രീകളാണ് പന്ത്ര ാളം പേർക്ക് പരിക്കേറ്റിട്ടുമു കടുത്ത മഞ്ഞുവീഴ്ചയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമു ായത് ആറ് സ്ത്രീകൾ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു സ്കൂൾ ബസ്സുകളും കാറുകളുമാണ് കൂട്ടിയിടിച്ചത്രെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

മുസാഫർ ജില്ലയിൽ താപനില പൂജ്യം ഡിഗ്രിയിലെത്തി

ഹിമാചൽ പ്രദേശിൽ ഗിരിവർഗ്ഗ ജില്ലകളായ ലാഹൌൽ സ്പിറ്റി എന്നിവിടങ്ങളിൽ താപനില ആറ് ഡിഗ്രിക്കും താഴെയായി